ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ

നടപടികൾ സ്വീകരിച്ചതായി ്മ്യന്ത്രി പ്രകാശ് ജാവദേക്കർ

പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചു

ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ ചെന്നൈയിൽ തുടക്കം

രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മിന്തി സ്വാശ്രയഭാരതം എന്ന കാഴ്ചപ്പാടിലേക്കുള്ള സുപ്രധാ്നു ചുവടുവയ്പ്പാണ് ബജറ്റെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പ്പറഞ്ഞു് കോവിഡ് മഹാമാരിയെ തുടർന്ന് അടിയന്തര സഹായ്ം വേണ്ടവരിലേക്ക് സർക്കാരിന് എത്തിച്ചേരാൻ ബജറ്റിലൂട്ടെ കഴിയും ദീർഘകാല വികസന മാതൃകയും ഉത്തേജക്കു പാക്കേജും ബജറ്റിലുണ്ട്

യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന അവരുടെ പങ്കാളിത്തം ഉയർത്തുന്ന സ്ഥിതി സൃഷ്ടിക്കപ്പെടണമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു

ഭവന നിർമ്മാണ പദ്ധതി റോഡ് നിർമ്മാണം ഗ്രാമീണ് വൈദ്യൂതീകരണം കാർഷിക വിഭവങ്ങൾക്ക് ഓൺലൈൻ വിപണി കർഷകർക്കുള്ള പദ്ധതികൾ എന്നിവയൊക്കെ സർക്കാർ നടപ്പാക്കി ധനമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം രാജ്യസഭയിൽ അവസാനിച്ചു രണ്ടാംഘട്ടം മാർച്ച് എട്ടിന് ആരംഭിക്കും

പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കുകയാണ് അത് പരിഹരിക്കുന്നതിന്റെ ആദൃ പടിയെന്ന് മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു

ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്

സാത്തൂർ ശിവകാശി വെമ്പകോട്ടൈ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാപ്രവർത്തകരെത്തി തീ നിയന്ത്രണ വിധേയമാക്കി

മഞ്ഞിടിച്ചിലിനെ തുടർന്ന് ഹിമാലയ നിരകളിൽ രൂപപ്പെട്ട തടാകത്തിൽ നിന്നുള്ള ജല്മൊഴുക്കിലാണ് ദൌളിഗംഗയിൽ വെള്ളം പൊങ്ങിയത്

തടാകം രൂപപ്പെട്ട പ്രദേശത്ത് പ്രതിരോധ ഗവേഷണ വിക്സ്ന് സംഘടനയുടേയും ദേശീയ ദുരന്ത നിവാരണ സേനയുട്ടേയുട് ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തി

പശ്ചിമ ബംഗാളിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ കുമാർ

മുൻകരുതലെന്ന നിലയ്ക്ക് ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് നടത്തിയവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്

വെള്ളം നിറച്ചു കുപ്പി ബാഗ് പഴ്സ് ക്യാമറ റേഡിയോ കുട ഭക്ഷണസാധനങ്ങൾ എന്നിവ സന്ദർശകർ ഒപ്പം കരുതരുതെന്ന് രാഷ്ട്രപതി ഭവൻ അധികൃതർ അഭൃർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പുതുച്ചേരി ചീഫ് സെക്രട്ടറി ഡിജിപി എന്നിവരുമായി ആശയവിനിമയം നടത്തിയ മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയും സംഘവും കേന്ദ്ര ഭരണ പ്രദേശത്തെ സുരക്ഷാ കാര്യങ്ങളും വിലയിരുത്തി തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഒപ്പം പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് രാഷ്ട്രീയ് കക്ഷികൾ അഭ്യർത്ഥിച്ചു

നാളെ കേരളത്തിലെ മുഖ്യ തെരുഞ്ഞെടുപ്പ് ഓഫീസർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ചു നടിത്തും

കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന പ്രകടനത്തിന് നേരെ പൊലീസ് അതിക്രമം കാട്ടിയതിൽ പ്രതിഷേധിച്ച് കൊൽക്കത്തയിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും പ്രകടനങ്ങൾ നടത്തി തൊഴിൽ നൽകണമെന്നും വൃവസായവത്കരണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയേറ്റിലേക്ക് പ്രകടനം നടത്തിയത് ഇന്നത്തെ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷയാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്നത്

നാല് ടെസ്റ്റുകളുള്ള പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ച ഇംഗ്ളണ്ട് മുന്നിലാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്രതീക്ഷ നിലനിർത്താൻ ഈ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്

ഗോവയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിലാണ് മത്സരം പുരോഗമിക്കുന്നത്

ജപ്പാൻ മുൻ പ്രധാനമന്ത്രി കൂടിയായ് അദ്ദേഹം താൻ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ലോക വ്യാപകമായി പ്രതിഷേധം ശക്തമായതിന്റെ തുടർന്നായിരുന്നു രാജി